നാമനിർദ്ദേശപത്രിക ഓൺലൈനായും ക്വാറന്റൈനിലുള്ള കോവിഡ് പോസിറ്റീവുകാർക്കും വോട്ട് ചെയ്യാം

സ്വകാര്യവത്ക്കരണത്തിന് എതിര്യ്ക്കിൽ തിരുവനന്തപുരം വിമാനത്താവളം ലേലത്തിൽ ക്ട്രേളസർക്കാർ പങ്കെടുത്തത് എന്തിനെന്ന് കേന്ദ്ര വ്യോമയാന്ന് മ്ന്തി ഹർദ്ദീപ്സിംഗ് പൂരി

നിയന്ത്രണങ്ങളോടെ ഓണ വിപണി സജീവം

പേർക്ക് രോഗമുക്തി

ലക്ഷം കടന്നു ഒന്നരകോടിയിലധികം പേർക്ക് രോഗമുക്തി

കോവിഡ് പോസിറ്റീവായവർ നിരീക്ഷണത്തിൽ കഴിയുന്നവർ എന്നിവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനാണ് അവസരമൊരുക്കുന്നത്

സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ചുപേർ മാത്രമേ വീടു വീടാന്തരം പ്രചാരണത്തിനെത്താന് പാടുള്ളൂ വോട്ടു ചെയ്യാനെത്തുന്ന എല്ലാവർക്കും മാസ്ക് നിർബന്ധമാണ് തെർമൽ സ് കാനിംഗ് സാനിറ്റൈസർ സോപ്പ് വെള്ളം തുടങ്ങിയവ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരിക്കണം

തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ജീവനക്കാർക്കും കോവിഡ് മാർഗനിർദേശങ്ങൾ പാലിച്ച് മതിയായ വാഹനസൌകര്യം ഏർപ്പെടുത്തണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിയന്ത്രണങ്ങളുണ്ട്

ഒരേ സമയം അഞ്ചു വാഹനങ്ങൾ മാത്രമേ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടുള്ളെന്നും മാർഗനിർദേശത്തിൽ പറയുന്നു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഭരണരംഗത്ത് മുപ്പതു വർഷത്തോളം സേഹ്റ്ന്മനുഷ്ഠിച്ചിട്ടുള്ള ശ്രീ രാജീവ്കുമാർ ബാങ്കിംഗ് മേഖലയിൽും സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഇദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്

നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അശോക് ലവാസ സ്ഥാനമൊഴിയുന്ന ഒഴിവിലാണ് ശ്രീ

രാജ്യത്തുടനീളമുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആധുനികവും പ്രകൃതി സൌഹാർദപരവുമായ സാങ്കേതികവിദ്യകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു റോഡ് നിർമ്മാണത്തിനായി പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗം ചർച്ച ചെയ്തു

ദേശീയപാത അതോറിറ്റി ആണ് ഈ പുതിയ മൊബൈൽ ആപ്സിക്കേഷൻ വികസിപ്പിച്ചത്

സാധാരണ ഉള്ളതിലും ആറു ശതമാനം കൂടുതൽ മഴ ലഭിച്ചത് ഈ വർഷം മികച്ച ഖാരിഫ് വിളവെടുപ്പിനു സഹായകമാകുമെന്ന പ്രത്യാശയിലാണ് കർഷകർ

മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കചേരുന്നതായും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

മരണത്താൽ അനാഥമായ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്റെ മനസ് പരുക്കേറ്റവർ എത്രയും വേഗം സുഖംപ്രാപിക്കുമെന്ന് ഞാൻ പ്രത്രീക്ഷിക്കുന്നു

കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും സർക്കാർ ഉറപ്പു നല്കി

കേരളത്തിൽ തന്നെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കേരളഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി കോടതി തള്ളുകയായിരുന്നു നിലവിൽ വിമാനത്താവളം കൈമാറുന്നതിന് കേരളാ ഹൈക്കോടതിയുടെയോ സുപ്രീംകോടതിയുടെയോ സ്റ്റേ നിലവില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഹോമങ്ങളും വിശേഷാൽ പൂജകളും നടക്കും

കോവിഡ് പശ്ചാത്തലത്തിൽ ഘോഷയാത്രയ്ക്കു പകരം പതാക ഉയർത്തൽ മാത്രമായിരിക്കും

കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ അഞ്ച് സെഞ്ചുറി അടക്കമുള്ള മികച്ച പ്രകടനമാണ് രോഹിതിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്

ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായുതാണ് വിനേഷ് ഫോഗട്ടിന് നേട്ടമായത്